കഴിഞ്ഞ വർഷത്തെ പ്രളയത്തെപ്പറ്റി അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട് ശരിയല്ലെന്ന് ഗവ ഹൈക്കോടതിയെ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല നിർണായക ഘട കമായെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

തുറമുഖങ്ങളിലെയും പുഴയോരങ്ങളിലെയും തീര മേഖല യിലെയും നിർമാണ പ്രവർത്തനങ്ങളിൽ നെതർലാന്റ് സിന്റെ വൈദഗ്ധ്യം കേരളത്തിന് പ്രയോജനപ്പെടുത്താനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ സന്ദർശനം തികച്ചും ഫലപ്ര ദമായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിലയിരുത്തി ഉപ്പുവെള്ള കൃഷി കടൽ നിരപ്പിൽ താഴെ നടത്തുന്ന കൃഷി പ്രിസിഷൻ ഫാമിംഗ് വിള വൈവിധ്യവത്കരണം എന്നീ മേഖ ലകളിലും നെതർലന്റ് സിന്റെ മാതൃക കേരളത്തിന് പിന്തുടരാ നാകും കുട്ടനാടൻ മേഖലയ്ക്ക് ഇത് വളരെ പ്രയോജനകര മാകുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു പരിസ്ഥിതി സൌഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും കയർ മേഖലയുടെ പ്രികസനത്തിനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഡച്ച് പ്രതിനിധികളെ ഉൾപ്പെ ടുത്തി യോഗം വിളിക്കാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു

കഴിഞ്ഞ വർഷത്തെ പ്രളയത്തെ കുറിച്ച് അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട് ശരിയല്ലെന്ന് ഗവ

അമിക്കസ് ക്യൂറിയുടേത് ശാസ്ത്രീയ റിപ്പോർട്ടല്ലെന്നും അതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമില്ലെന്നും സത്യ വാങ്മൂലത്തിൽ പറയുന്നു അതിവർഷം തന്നെയാണ് പ്രളയ കാരണമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടു ണ്ടെന്നും ഗവൺമെന്റ് വൃക്തമാക്കി ശാസ്ത്രലോകം തള്ളിയ കണക്കുകൾ അടിസ്ഥാനമാക്കി യാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ഗവ വിശദീകരിച്ചു കേരളത്തെ പിടിച്ചുലച്ച പ്രെളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന് അമിക്കസ് ക്യൂറി ജേക്കബ് പി തോമസ് നേരത്തെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സംഭവത്തിൽ ജൂഡീഷ്യൽ അന്വേഷണം നട ത്തണമെന്നും അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടിരുന്നു പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ ഗവമെന്റിന് വീഴ്ച സംഭ വിച്ചുവെന്നാരോപിച്ച് ഒട്ടേറെ ഹർജികൾ പരിഗണനക്കു വന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത്

ശബരിമല പ്രശ്നത്തിൽ തെറ്റായ ഒരു നടപടിയും ഗവ സ്വീക രിച്ചിട്ടില്ലെങ്കിലും ജനങ്ങളെ കബളിപ്പിക്കാൻ വർഗീയ ശക്തി കൾക്ക് സാധിച്ചുവെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു എക്സിറ്റ് പോളുകൾ ശരിയാകണമെന്നില്ലെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള അവകാശപ്പെട്ടു കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ അനുകൂലഘടകങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു എക്സിറ്റ് പോൾ ഫലം പ്രകാരം കേരളം യു ഡി എഫിന് തീറെഴുതി കൊടുക്കുന്നതിന് പ്രധാന മുഖ്യ ഉത്തരവാദി സി പി ഐ എമ്മാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ് സി പി ഐയിലും സി പി ഐ എമ്മിലും ഉളളതെന്നും അദ്ദേഹം കൂറ്റപ്പെടുത്തി ശബരിമല വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് കേരളത്തിൽ സീറ്റ് കുറയാൻ കാരണമെന്നും ചെയ്ത തെറ്റ് ഏറ്റ് പറയാൻ എൽ ഡി എഫ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിൽ ബി ജെ പി പ്രാതിനിധ്യമുണ്ടാ ക്കുമെന്നും ശ്രീധ രൻപിള്ള പറഞ്ഞു

കേസിൽ ഹൈക്കോടതിക്ക് ഇടപെ ടാൻ കഴിയില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അതേസമയം രമേശ് ചെന്നിത്തലയുടെ ഹർജി തള്ളണ മെന്ന് ഗവ

സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നും വോട്ടെണ്ണ ലിന് ശേഷം മാത്രമേ പോസ്റ്റൽ വോട്ടുകളെക്കുറിച്ചുള്ള വിവ രങ്ങൾ ലഭിക്കുകയുള്ളൂവെന്നും ഗവ

എം ഏത് സമയത്തും ബോംബ് എറിയാൻ കഴിയുന്ന രൂപത്തിൽ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സതീഷൻ പാച്ചേനി കുറ്റപ്പെ ടുത്തി കള്ളവോട്ട് നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നു റീപോളിംഗ് നടന്ന പിലാത്തറയിൽ കോൺഗ്രസ് ബൂത്ത് ഏജന്റായ വി

വി പത്മനാഭന്റെ വീടിനും പൊതുതെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്റെ വോട്ട് മറ്റാരോ ചെയ്തതിനെ തുടർന്ന് വോട്ട് ചെയ്യാനാകാതെ മടങ്ങിയ ഷാലറ്റ് സെബാസ്റ്റ്യന്റെ പിലാത്തറ സിഎം നഗറിലെ വീടിനു നേരെയും ബോംബെറിഞ്ഞ സംഭവം ഇതാണ് തെളിയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

പോളിംഗ് സമാധാനപരമായി കഴിഞ്ഞതിനു പിന്നാലെ അർധരാത്രിയോടെ നടത്തിയ അക്രമം കള്ളവോട്ട് ചെയ്യാൻ കഴിയാത്തതിലെ നിരാശ മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു പരാജയഭീതിയിലാണു സിപിഐഎം ഇത്തരം അക്രമം അഴിച്ചുവിടുന്നതെന്നും ബോംബേറിൽ തകർന്ന വീടുകൾ സന്ദർശിച്ച ശേഷം സതീശൻ പാച്ചേനി പറഞ്ഞു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ഇന്നു ച്ചുക്കു ശേഷം ചർച്ച നടത്തും എക്സിറ്റ് പോൾ പ്രവചനങ്ങ ളുടെ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച

കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് സിപിഐ ബിഎസ്പി സമാജ്വാദി പാർട്ടി നേതാക്കളുമായി ചന്ദ്രബാബു നായിഡു ചർച്ച നടത്തിയിരുന്നു ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്

ലോക്സഭാ തെര ഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ്പോൾ ഫലങ്ങൾ പുറ ത്തുവന്നതിനെ തുടർന്നാണ് ഓഹരി വിപണിയിലെ കുതിച്ചു കയറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അപ്പപ്പോൾ ആകാശ വാണി ജനങ്ങളിലെത്തിക്കും ഇതിനായി പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും ഫ്ളാഷ് ബുള്ളറ്റിനുകളും പ്രക്ഷേപണം ചെയ്യും തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്ന പാനൽ ചർച്ചയും സംഘടിപ്പിക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ പിന്നാക്ക ക്ഷേമ മന്ത്രി ഓം പ്രകാശ് രാജ്ഭ റിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശുപാർശ പ്രകാരമാണ് ഗവർണർ രാം നാ യിക്കിന്റെ നടപടി സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി നേതാവ് കൂടിയായ രാജ്ഭർ ബിജെപിക്കെതിരെ ആവർത്തിച്ചു യർത്തുന്ന ആരോപണങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ പുറ ത്താക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആന്റമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു ജൂൺ ആറോടെ കാലവർഷം കേരളത്തിലെത്തു മെന്നാണ് സൂചന

ഹയർസെക്കണ്ടറി പ്ലസ് വൺ പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു ഹയർസെക്കന്ററി പ്രവേശന ഏകജാലക സംവിധാന വെബ് സ്റ്റൈൽ അപേക്ഷാനമ്പറും ജനനതിയ്യതിയും നൽകി പരിശോധിക്കാം തിരുത്തലുകൾക്ക് നാളെ വൈകീട്ട് നാലുവരെ സമയം നൽകിയിട്ടുണ്ട് പ്രഖ്യാ പിച്ചതിലും ഒരു ദിവസം നേരത്തെയാണ് ഹയർസെക്കൻ്ററി ഡയറക്ട്രേറ്റ് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചത് ഹൈസ്കൂൾ ഹയർസെക്കണ്ടറി ഏകീകരണം ചർച്ച ചെയ്യാൻ ഗവിവിളിച്ച അധ്യാപക സംഘടനകളുടെ യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും ഏകീകരണ നീക്ക ത്തിനെതിരെ ഹയർ സെക്കണ്ടറിയിലെ എല്ലാ അധ്യാപക സംഘടനകളും രംഗത്തു വന്ന സാഹചര്യത്തിൽ പൊതുവി ദ്യാഭ്യാസ സെക്രട്ടറിയാണ് യോഗം വിളിച്ചത്

മൃഗാശുപത്രികളിൽ രാത്രികാല മൃഗചികിത്സാ സേവനം സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി കെ

കേരള ഗവ വെറ്ററിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ ദക്ഷിണ മേഖലാ സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ലോക്കൽ കമ്മിറ്റി അംഗുമായ് പീതാംബ രൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ് കൊലപാതകമാണി തെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ തൊണ്ടി മുതലുകൾ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി യിരുന്നു കാസർകോട് ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി യിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കെവിൻ വധക്കേസിലെ സാക്ഷി രാജേഷിനെ കേസിലെ പ്രതികൾ മർദ്ദിച്ചതായി പരാതി

ഇതേ തുടർന്ന് പുനലൂർ പൊലീസ് പ്രതി കൾക്കെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവ ശ്യപ്പെട്ടിട്ടുണ്ട് ആനക്കൊമ്പ് കൈവശം വെച്ചതിന് ചലച്ചിത്രതാരം മോഹൻലാലിനെതിരായ കേസ് ഹൈക്കോടതി അല്പസമയ ത്തിനകം പരിഗണിക്കും മോഹൻലാലിനു വേണ്ടി സുപ്രീംകോ ടതി ചീഫ് ജസ്റ്റിസിന്റെ മകൾ റോഷ്നി ഗൊഗോയ് ആണ് ഹാജ രാകുന്നത് നെയ്യാറ്റിൻകരയിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികൾക്കായി പൊലീസിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും ഇവരെ ചോദൃം ചെയ്യാനും തെളിവെടുപ്പിനു മായി അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ നൽകണമെന്നാണ് ആവശ്യം കോഴിക്കോട് വിമാനത്താവളത്തിൽനിന്ന് വലിയ വിമാന സർവീസ് തുടങ്ങുന്നതിനോടനുബന്ധിച്ചു ചർച്ചകൾക്കായി എയർഇന്ത്യ അധികൃതർ ഇന്ന് കരിപ്പൂരിലെത്തും വലിയ വിമാ നങ്ങൾക്ക് ഡയറക്ട്രേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ സുരക്ഷാ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് അധികൃതർ കരി പ്പൂരിൽ എത്തുന്നത്

ഓരോ ദിവസവും പ്രത്യേക സമയം നിശ്ചയിച്ച് നഗരത്തിലെ ഭൂരിഭാഗം പൊലിസ് ഉദ്യോഗസ്ഥരും ഡ്രൈവിൽ പങ്കാളികളാകും

ചതുപ്പ് നിലത്തിലൂടെ പോകുന്ന ഹൈടെൻഷൻ ലൈനുകൾ ചുഴലിക്കാറ്റിൽ തകർന്നത് പുനഃസ്ഥാപിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബ്രിമല നട അട ച്ചു

ഈ വർഷത്തെ എറണാകുളം ജില്ലയിലെ പ്രവേശനോ ത്സവം പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർസെ ക്കന്ററി സ്കൂളിൽ നടത്തും ഈ വർഷം ഒന്നാം ക്ലാസിലെയും പതിനൊന്നാം ക്ലാസിലെയും പ്രവേശനം ഒന്നിച്ചു നടത്താനാണ് തീരുമാനം സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ ജില്ലയിൽ നിർവ്വഹിക്കും